ഡെൽഹി മെട്രോ പുതുതായി നിർമ്മിച്ച മുണ്ട്ക ബഹുദൂർഗഡ് ഇടനാഴി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു നഗരങ്ങളിൽ ചെലവ് കുറഞ്ഞ ഗതാഗത സൌകര്യം ഒരുക്കാൻ ഗവണമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് നരേന്ദ്രമോദി

മറ്റ് രണ്ട് മത്സരങ്ങളിൽ ജപ്പാൻ സെനഗലിനെയും പോളണ്ട് കൊളംബിയയെയും നേരിടും

ജനശക്തിയിലൂടെ ജി

ചെക്ക് പ്രോസ്റ്റുകൾ ഇല്ലാതായതും സാധന സാമഗ്രികളുടെ പോക്കുവരവൂക്ർക്ക് ഗതിവേഗം കൂടിയതും ജി

പ്രതിമാസ റേഡിയോ പ്രക്ഷേപണൂ പ്പൂർപാടിയായ മൻകി ബാതിലൂടെ രാജ്യത്തെ ജനങ്ങളോട് സംവദിക്കുക്ക്യായിരുന്നു ശ്രീ

ഡി എ ഗവൺമെന്റ് നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നല്ല മാറ്റത്തിന് തുടക്കം കുറിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പ്രൊഫഷണലുകളും ടെക്നോക്രാറ്റുകളും എഞ്ചിനീയർ മാരുമായ യുവാക്കൾ തങ്ങളുടെ പ്രവർത്തന മേഖലയ്ക്ക് പുറത്തേയ്ക്ക് കടന്ന് കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാൻ നടത്തിയ പ്രയത്നത്തെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു

കുൽഗാം ജില്ലയിലെ ചദ്ദർഭൻ മേഖലയിൽ റോന്തുചുറ്റുകയായിരുന്ന സൈനിക സംഘത്തിനു നേരെ അജ്ഞാതർ വെടിയുതിർത്തിനെ തുടർന്നാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് ഒരു തീവ്രവാദി കീഴടങ്ങി മരിച്ചവരിൽ ഒരാൾ പ്രദേശവാസിയാണ് മറ്റൊരാൾ വിദേശിയാണെന്ന് സംശയിക്കുന്നു

കുർനൂൾ ജില്ലയിലെ സോമരാജു പള്ളിയിൽ ഓട്ടോക്ടിക്ഷ് ബസുമായി കൂട്ടിമുട്ടിയാണ് ഉണ്ടായത്

മരിച്ചവരുടെ കുടുംബാർഗ്ഗങ്ങൾക്കും പരിക്കേറ്റവർക്കും അടിയന്തിര സഹായമെത്തിക്കാൻ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു അധികൃതർക്ക് നിർദ്ദേശം നൽകി

രക്ഷാപ്രവർത്തനങ്ങൾക്ക് ദേശീയ ദുരന്തനിവാരണ സേന നേതൃത്വം നൽകി

ജനാധിപത്യത്തിന്റെ ഭരണഘടനാപരമായ വ്യവസ്ഥകളെ സേഛാധിപത്യത്തിലേക്ക് പരിവർത്തനം ശ്രമമായിരുന്നു ചെയ്യാനുള്ള ഇന്ദിരാഗാന്ധിയുടേതെന്ന് അദ്ദേഹം അഭിപ്തായപ്പെട്ടു

കൂടുതൽ വിവരങ്ങളുമായി കെ

ബട്ടുൽഗമ്മുമായും പ്രധാനമന്ത്രി ഖുർലേസ് സുഖു ഉപപ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നിവരുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തി ഇന്ത്യയുടെ സഹകരണത്തോടെ മംഗോളിയയിൽ നടപ്പിലാക്കുന്ന പെട്രോ കെമിക്കൽ റിഫൈനറി പദ്ധതിയ്ക്ക് ശ്രീ രാജ്നാഥ് സിംഗും മംഗോളിയൻ പ്രധാനമന്ത്രിയും ചേർന്ന് തുടക്കം കൂറിച്ചു വ്യവസായം സാമ്പത്തിക സഹകരണം ഊർജ്ജ സുരക്ഷ ഖനനം പാരമ്പര്യ വൈദ്യം മൃഗസംരക്ഷണം വിദ്യാഭൃാസം തുടങ്ങീ വിവിധ മേഖലകളിൽ പരസ്പരം സഹകരണത്തിനും ഇരുരാജൃങ്ങളും തമ്മിൽ ധാരണയായി ന്യൂസ് ഡെസ്ക് ആകാശവാണി

അന്തർദേശീയ ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായാണ് വ്യക്തികൾക്കും സംഘടനകൾക്കും പൂർസ്ട്കാരം നൽകുന്നത്

നഗരങ്ങളിൽ ചെലവ് കുറഞ്ഞ സൌകര്യപ്രദമായ വാഹന ഗതാഗത സൌകര്യം ഒരുക്കാൻ ഗവണമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി ചടങ്ങിൽ പറഞ്ഞു പുതിയ ഇന്തൃയ്ക്ക് ആവശ്യം പുതിയതും സ്മാർട്ടായതുമായ അടിസ്ഥാന സൌകര്യ വികസനമാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകാൻ മെട്രോ ട്രെയിനുകളുടെ കോച്ചുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ പദ്ധതിയുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു

രണ്ട് ദിവസം നീണ്ടുനിൽക്കുന്ന സമ്മേളനം സംഘടിപ്പിക്കുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രാലയമാണ്

അടിസ്ഥാന സൌകര്യ വികസന മേഖലയ്ക്കാവശ്യമായ ഒട്ടേറെ കാര്യങ്ങൾ പ്രതിനിധികളുമായി ചർച്ച ചെയ്യും

അടിസ്ഥാന സൌകര്യ പ്പികസന മേഖലയിലെ ഒട്ടേറെ പൊതു സ്വകാര്യ കമ്പനികൾ എക്സ്പോയിൽ പങ്കെടുക്കും

ഒന്നിനെതിരെ ആറ് ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് പാനമയെ പരാജയപ്പെടുത്തിയത്

ലോകത്ത് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് നിരോധനം ഉണ്ടായിരുന്ന ഏക രാജ്യമായിരുന്നു സൌദി അറേബ്യ

എസ് സംഘത്തിന്റെ ആക്രമണമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് കർഫ്യൂ ക്രപ്യാപിച്ചത് കഴിഞ്ഞ ഒക്ടോബറിൽ റാഖയിലെ ഐ എസ്പ് കേന്ദ്രം അമേരിക്കൻ സഹായത്തോടെ സിറിയൻ സേന ത്രിക്ർക്കുകയും നഗരം പോലീസ് നിയന്ത്രണത്തിലാക്കുകയും ചെയ്ത്തിരുന്നു